വെങ്കയ്യനായിഡു

ചന്ദ്രശേഖരൻ

കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യം നിർണ്ണായക പുരോഗതി കൈവരിച്ചതായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യനാ യിഡു പറഞ്ഞു ലോകസാമ്പത്തിക രംഗം മന്ദീഭവിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പ ത്തിക രംഗം വേഗത്തിൽ ഉയർച്ച നേടുകയാണെന്ന് അദ്ദേഹം വൃക്തമാക്കി ചിക്കാ ഗോയിൽ അമേരിക്കയിലെ തെലുങ്ക് ജനതയുടെ യോഗത്തിൽ സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക പൂരോഗതിയെക്കുറിച്ച് ഏഷ്യൻ ഡവ ലപ്പ്മെന്റ് ബാങ്ക് ലോകബാങ്ക് ഐ എം

തുടങ്ങിയ സാമ്പത്തിക ഏജൻസി കൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ലോകം ഇന്ത്യയുടെ വളർച്ച ഇപ്പോൾ ഉറ്റുനോക്കു കയാണെന്നും അദ്ദേഹം പറഞ്ഞു

പി ദേശീയ നിർവ്വാഹക സമിതിയുടെ വൈകീട്ട് നടക്കുന്ന സമാപന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഇന്നലെയാണ് ന്യൂഡൽഹി യിൽ യോഗം ആരംഭിച്ചത് പൊതുതെരഞ്ഞെടുപ്പിലും നിയമുസഭാ തെരഞ്ഞെടു പ്പുകളിലും സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ നിർവ്വാഹകസമിതി യോഗം ചർച്ച ചെയ്യു ന്നുണ്ട് ഗവൺമെന്റിന്റെ നാലുവർഷങ്ങളിലെ ഭരണനേട്ടം ജനങ്ങളിൽ എത്തി ക്കാനാവശൃമായ നടപടികളും ചർച്ചയാകും പ്രളയക്കെടുതിയിൽനിന്ന് കേരളം കരകയറുന്നത് ലോകം അദ്ഭുതത്തോടെയാണ് നോക്കികാണുന്നതെന്ന് മന്ത്രി ഇ

പ്രളയദുരിതാശ്വാസ ഫണ്ട് ശേഖരണത്തിനുവേണ്ടി കരിവള്ളൂരിൽ സൈക്കിൾ ക്യാമ്പയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ഡി ടി

യും സംയുക്തമായാണ് സൈക്കിൾ ക്യാമ്പയിൽ സംഘടിപ്പിക്കുന്നത് ജില്ല യിൽ വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനത്തിനുശേഷം സൈക്കിൾ ക്യാമ്പയിൻ വൈകീട്ട് മാഹിയിൽ സമാപിക്കും പ്രളയക്കെടുതിയുടെ സാമൂഹിക സാമ്പത്തിക ആഘാതങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനു തയ്യാറാക്കുന്ന പ്രളയ ഭൂപട സർവേ പാലക്കാട് ജില്ലയിൽ തുടങ്ങി ജില്ലയിലെ അകത്തേത്തറ പഞ്ചായത്തിലെ ആണ്ടിമഠം പ്രദേശത്തിന്റെ ഭൂപടമാണ് സംസ്ഥാനത്ത് ആദ്യം തയ്യാറാക്കുക ഇന്നും നാളെയും നടക്കുന്ന സർവേക്കുശേഷം ചൊവ്വാഴ്ച പഠനറിപ്പോർട്ട് പുറത്തിറക്കും പ്രളയദുരിതബാധിതരായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമ്പോൾ അനർഹർ ഉൾപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി കെ രാജു പറഞ്ഞു കോഴി ക്കോട് ജില്ലയിലെ മൃഗസംരക്ഷണ ക്ഷീരവികസനവകുപ്പുകളുടെ ദുരിതാശ്വാസ പ്രവർത്ത അവലോകനയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നവകേരള നിർമ്മിതിക്ക് ജനങ്ങളുടെ ഒറ്റക്കെട്ടായ പിന്തുണ ലഭിക്കുന്നതായി മന്ത്രി ടി

വിഭവസമാഹരണം ചർച്ചചെയ്യാൻ കോഴി ക്കോടുചേർന്ന വ്യവസായികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി അണക്കെട്ടുകളിൽ വെള്ളം ഇല്ലാത്തത്കൊണ്ടല്ല സംസ്ഥാനത്ത് വൈദ്യുതി നിയ ന്ത്രണം ആവശ്യമായി വരുന്നതെന്ന് മന്ത്രി എം

പ്രളയത്തിൽ പവർഹൌസുകൾക്കുണ്ടായ കേടുപാടുകളാണ് വൈദ്യുതി ഉൽപ്പാദനം കുറയ്ക്കു ന്നത്

അക്കാരണത്താൽ സംസ്ഥാനത്ത് ആരും മരിച്ചിട്ടില്ലെന്ന് മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു പ്രളയകാ ലത്ത് ഡാംസുരക്ഷാ വിഭാഗത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരി ശോധിക്കുമെന്നും എം

മണി അറിയിച്ചു സംസ്ഥാനത്ത് പ്രളയത്തിൽ തകർന്ന കെ

ടി

റോഡുകളുടെ നവീകര ണച്ചെലവ് തിട്ടപ്പെടുത്താൻ ലോക ബാങ്ക് സംഘം നാളെ എത്തും

ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് നവീകരിക്കുന്ന റോഡുകളുടെ പട്ടികയിൽപ്പെടു ത്തിയിട്ടുണ്ട് പ്രളയത്തെ തുടർന്ന് രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് പുതുക്കിയ രേഖകൾ നൽകു ന്നതിന് ഫീസ് ഈടാക്കാൻ പാടില്ലെന്ന് ഉത്തരവ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ബോർഡ് കോർപ്പറേഷൻ സർവ്വകലാശാലകൾ ഡയറക്ടറേറ്റ് എന്നിവയ്ക്കാണ് ഇതുസംബന്ധിച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയത് പ്രളയക്കെടുതിയിൽ ഉറ്റവർ നഷ്ടപ്പെട്ട രണ്ടു വിദ്യാർത്ഥികളുടെ തുടർപഠനം കാലിക്കറ്റ് സർവ്വകലാശാല് ഏറ്റെടുക്കും ഇന്നലെ ചേർന്ന സിണ്ടിക്കേറ്റ് യോഗ മാണ് ഇതുസംബന്ധിച്ച തീരുമാനമെടുത്തത്

വിദൂര പഠന വിഭാഗത്തിലെ പ്രളയബാധിത വിദ്യാർത്ഥി കൾക്ക് ട്യൂഷൻഫീസ് രണ്ട് ഗഡുക്കളായി അടയ്ക്കാൻ സിണ്ടിക്കേറ്റ് അനുമതി നൽകി കേരള സ്റ്റേറ്റ് ഗ്വൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസി യേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയുർവണ്ടി ദുരന്ത മേഖല കളിൽ പര്യടനം നടത്തി

മുൻപ്രധാനമന്ത്രി രാജീവ് വധക്കേസ് പ്രതികളുടെ ജയിൽമോചന വിഷയം ചർച്ചചെയ്യാൻ തമിഴ്നാട് മന്ത്രിസഭ ഇന്ന് ചേരും

ദിവസം കേസിൽ ശിക്ഷിക്കപ്പെട്ട ഏഴ് പ്രതികളാണ് ഇപ്പോൾ വെല്ലൂർ സെൻട്രൽ ജയിലിലുള്ളത് സംസ്ഥാനത്ത് നാളെ യു

ഉം എൽ

വിനോദ സഞ്ചാരമേഖലയെ ഹർത്താലിൽനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് സി ഐ ടി

സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു

കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചു

എസ്

സി സർവ്വീസ് നടത്തണമെന്ന് ചീഫ് ഓഫീസിൽനിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രധാന സ്ഥലങ്ങളിലേക്ക് പ്രത്യേക സർവ്വീസും നടത്തും ഹർത്താലുമായി സഹകരിക്കു മെന്ന് കേരള ഹോട്ടൽ ആന്റ് റസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ കൊച്ചി യിൽ പറഞ്ഞു പ്രളയദുരിതത്തിൽനിന്ന് കരകയറാൻ പാടുപെടുന്ന കേരളത്തെ ഹർത്താലിൽനിന്ന് ഒഴിവാക്കി ബദൽ പ്രതിഷേധത്തിന് തയ്യാറാകണമെന്ന് ഹർത്താൽ വിരുദ്ധമുന്നണി കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു പെട്രോൾ ഡീസൽ വിലയിൽ ഇന്ന് വീണ്ടും വർദ്ധന്

കൊല്ലം പത്തനാപുരം മൌണ്ട് താബോർ ദയേറ കോൺവെന്റിലെ കിണറിൽ കന്യാസ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ അധ്യാപിക സിസ്റ്റർ സൂസൻ മാത്യൂവാണ് മരിച്ചത്

കിണറിനുസമീപം രക്തപ്പാടുകൾ കണ്ട തായി റിപ്പോർട്ടുണ്ട്

ശശി എം എൽ എ ക്കെതിരെ പരാതി ലഭിച്ചിട്ടും പൊലീസിന് കൈമാറാതിരുന്ന മന്ത്രി എ

ബാലൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയതായി ബി

പാലക്കാട് ജില്ലാ കമ്മറ്റി കുറ്റപ്പെടുത്തി വിഷയത്തിൽ ബുധനാഴ്ച ചെർപ്പുളശ്ശേരിയിൽ പ്രതിഷേധ സംഗമം നടത്തുമെന്ന് പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു ലൈംഗിക പീഡന പരാതിയിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെ നാളെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കോട്ടയം കുറവി ലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീ കൂട്ടായ്മ വ്യക്തമാക്കി ഇപ്പോൾ നടക്കുന്ന അന്വേ ഷണം തൃപ്തികരമാണെങ്കിലും കേസ് അട്ടിമറിക്കാൻ ഉന്നതർ ശ്രമിക്കുകയാണെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

ബിഷപ്പിനെതിരെ പരാതി നൽകിയ കന്യാസ്ത്രീക്കെതിരെ അപ കീർത്തികരമായ പരാമർശം നടത്തിയ പി

ജോർജ്ജ് എം

എ ക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും അവർ പറഞ്ഞു ജലന്ധർ ബിഷപ്പിനെതിരായ ലൈംഗികാരോപണ കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ഡി

കന്യാ സ്ത്രീയുടെ പരാതി സംബന്ധിച്ച് അന്വേഷണം ഉടൻ പൂർത്തിയാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

കേസെടുക്കുന്നകാര്യം നിയമോപദേശം ലഭിച്ചതിന്ശേഷം തീരുമാനിക്കുമെന്നും ഡി

പറഞ്ഞു ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡന പരാതിയിൽ നട പടി എടുക്കുന്നതിന് കാലതാമസം വരുന്നത് നീതിനിഷേധമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എം

ജോസഫൈൻ പറഞ്ഞു എത്രയുംവേഗം അന്വേഷണം പൂർത്തിയാക്കി നടപടി സ്വീകരിക്കണമെന്ന് അവർ സ്വകാര്യ ചാനൽ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു ലണ്ടനിൽ ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിവസത്തെ കളി ഇന്ത്യൻസമയം വൈകീട്ട് മൂന്നരയ്ക്ക് ആരംഭിക്കും

പ്രമ്പര നേർത്തെതന്നെ ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ട്രോമാകെയർ സംവിധാനത്തോടെ പുതിയ ആംബുലൻസ് ശൃംഖല ആരംഭിക്കുമെന്ന് മന്ത്രി കെ

നിലവിൽ സർവ്വീസ് നടത്തുന്ന ആംബുലൻസുകളെ ബന്ധിപ്പിച്ചായിരിക്കും പുതിയ സംവിധാനം ആരംഭിക്കുകയെന്ന് മന്ത്രി ആലപ്പുഴ ചമ്പക്കുളത്ത് പറഞ്ഞു

സ്വവർഗു വിവാഹം ക്രൈസ്തവസഭ അംഗീകരിക്കുന്നില്ലെന്ന് കേരള കാത്ത ലിക് ബിഷപ് കൌൺസിൽ കൊച്ചിയിൽ അറിയിച്ചു സ്വർഗ്ഗരതി സംബന്ധിച്ച കോടതി വിധി നിയമ ധാർമ്മിക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് കെ

സ്വവർഗ്ഗരതിയ്ക്ക് നിയമ പരിരക്ഷ നൽകുന്നത് ആശങ്കാ ജനകമാണെന്ന് കെ

എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ളക്കോയ മദനി വടകരയിൽ പറ ഞ്ഞു

എം സംസ്ഥാന സമിതി സംഘടിപ്പിച്ച വെളിച്ചും അന്താ രാഷ്ട്ര പഠന്പദ്ധതിയുടെ സംസ്ഥാന സംഗമം ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു അദ്ദേഹം പാലക്കാട് ജില്ലയിൽ എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊൌർജ്ജിതമാക്കുന്നതിന്റെ ഭാഗമായി രോഗലക്ഷണങ്ങളോടെ ചികിത്സതേടുന്നവരുടെ കണക്ക് ആരോഗ്യവിഭാഗത്തെ അറിയിക്കാൻ സ്വകാര്യ ആശുപത്രി കൾക്ക് നിർദ്ദേശം നൽകി ഇന്നലെ പാലക്കാട് ജില്ലയിൽ നാലുപേർക്ക് കൂടി എലിപ്പനി സ്ഥിരീകരിച്ചു